ചികിത്സയിലായിരുന്ന രണ്ടുപേരിൽ ഒരാളെ ഇന്ന് ഡിസ്ചാർജ്ജ് ചെയ്യും

സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് തിരുവന്തപുരത്ത് കേരളത്തിലെ രാജ്യ സഭാ സീറ്റു കളിൽ മൂന്ന് സ്ഥാനാർത്ഥികളും ഇന്ന് പത്രിക നൽകും ്ത് സംസ്ഥാനത്ത് കാലവർഷം ശക്തം

ഐ

ഇ ഇ അഡ്വാൻസ്ഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു

ശൈലജ അറിയിച്ചു നിപയുടെ ആശങ്ക ഇല്ലാതാ യെങ്കിലും ഈ മാസം അവസാനം വരെ ജാഗ്രത തുടരാൻ ഇന്നലെ കോഴിക്കോട്ട് ചേർന്ന സർവ്വകക്ഷിയോഗം തീരുമാ നിച്ചിട്ടുണ്ട് പൊതുയോഗങ്ങൾക്കും കൂട്ടായ്മകൾക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒഴിവാക്കി എന്നാൽ മാസാവ സാനം വരെ സ്വയം നിയന്ത്രണം പാലിക്കുന്നത് നല്ലതായിരി ക്കുമെന്ന് യോഗം വിലയിരുത്തി

അതിനുശേഷം നിപാ സെൽ സിവിൽ സ്റ്റേഷ നിലേക്ക് മാറ്റും വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ പരി ശോധന തുടരാനും തീരുമാനിച്ചിട്ടുണ്ട് സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാളെ തുറക്കും അതിനുമുമ്പ് സ്കൂളുകളിൽ പരിസര ശുചീകരണം ഉറപ്പാ ക്കാൻ നിർദ്ദേശം നൽകി കോഴിക്കോട് ആലപ്പുഴ വൈറോ ളജി ലാബുകൾ യാഥാർത്ഥ്യമാക്കും തിരുവനന്തപുരത്തെ നിർദ്ദിഷ്ട വൈറോളജി ഗവേഷണകേന്ദ്രവും എത്രയും വേഗം നിർമ്മിക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു മന്ത്രിമാരായ ടി പി രാമകൃഷ്ണൻ എ കെ ശശീന്ദ്രൻ മേയർ കലക്ടർ എം പിമാർ എം എൽ എമാർ തുടങ്ങിയവർ യോഗ ത്തിൽ പങ്കെടുത്തു

സി സി രാഷ്ട്രീയകാരൃ സമിതി യോഗം ഇന്ന് തിരു വനന്തപുരത്ത് ചേരും

സി സി ആസ്ഥാനത്താണ് യോഗം രാജ്യസഭാ സീറ്റിന്റെ പേരിൽ പാർട്ടിയിൽ തുടരുന്ന അഭിപ്രായ വ്യത്യാസം യോഗത്തിൽ ചർച്ചയായേക്കും കേരളാ കോൺഗ്രസ്സിന് രാജ്യസഭാ സീറ്റ് നൽകിയതിൽ മുതിർന്ന നേതാക്കളായ വി എം സുധീരനും പി ജെ കുര്യനുമടക്കം നേതാക്കൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു അതേസമയം ഇന്നത്തെ യോഗത്തിൽ എ ഐ

സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പങ്കെടുക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട് നാളെ രാവിലെ കെ

സി സി നേതൃയോഗവും ചേരും കേരളത്തിൽ ഒഴിവുവന്ന് മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകും

ഡി

ഡി എ ഫിന്റെ കേരളാ കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ജോസ്

മാണി പന്ത്രണ്ടരയോടെ പത്രിക നൽകും പത്രിക സമർപ്പി ക്കേണ്ട അവസാന ദിവസം ഇന്നാണ് നാളെ സൂക്ഷ്മ പരി ശോധന നടത്തും മൂന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സര ത്തിനില്ലെങ്കിൽ വ്യാഴാഴ്ച മൂന്നുപേരെയും വിജയികളായി പ്രഖ്യാപിക്കും

ഗവൺമെന്റ് തുടങ്ങുന്ന കേരള ബാങ്കിന്റെ പ്രവർത്തനത്തിന് റിസർവ് ബാങ്ക് അനുമതി മാത്രമാണ് ശേഷിക്കുന്നതെന്ന് അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു ദേശിംഗ നാട് റാപ്പിഡ് ഡെവല പ്മെന്റ് ആന്റ് അസിസ്റ്റൻസ് സഹകരണ് സംഘത്തിന്റെ വൈവിധ്യവൽക്കരണ സംരംഭം ഡ്രീംസ് ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി ഉന്നത ഉദ്യോഗതലത്തിൽ സിവിൽ സർവീസിന് പുറമെ നിന്ന് നേരിട്ട് നിയമനം നടത്താനുള്ള കേന്ദ്ര തീരുമാനത്തെ പ്രതി പക്ഷ പാർട്ടികൾ എതിർത്തു

പിയും ആർ എസ് എ സ്സുമായി ബന്ധം പുലർത്തുന്നവരെ നിർണ്ണായക പദവിക ളിൽ നിയമിക്കാൻ ലക്ഷ്യമിട്ടാണ് ഗവൺമെന്റ് നടപടിയെന്ന് കോൺഗ്രസ്സും ഇടതുപാർട്ടികളും കുറ്റപ്പെടുത്തി ഈ നീക്കം ദുരുദ്ദേശ പ്രേരിതമാണെന്ന് കോൺഗ്രസ് വക്താവ് പി

കുനിയയും സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അഭിപ്രായപ്പെട്ടു സ്വകാര്യ മേഖലയിലെ ഉൾപ്പെടെ വിദഗ്ദ്ധരെ ഗവൺമെന്റിന്റെ ഭരണസംവിധാനത്തി ലേക്ക് ജോയിന്റ് സെക്രട്ടറിമാരായി നേരിട്ട് നിയമിക്കാൻ കഴി ഞ്ഞയാഴ്ചയാണ് പരസ്യം നൽകിയത്

നിരവധി വീടു കൾ തകർന്നു വ്യാപകമായ കൃഷിനാശവുമുണ്ടായി കൊച്ചി വേമ്പനാട്ടുകായലിൽ മത്സ്യബന്ധനത്തിന് പോയ ഒരാൾ വള്ളം മറിഞ്ഞ് മരിച്ചു ഉദയംപേരൂർ സ്വദേശി ശശിയാണ് ഇന്നലെ രാത്രി മരിച്ചത് സംസ്ഥാനത്തെ വ്യാപകമായ കാലവർഷ ദുരന്തം നേരി ടാൻ ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകണമെന്ന് പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗ്ഗവൺമെന്റിനോടാവശ്യ പ്പെട്ടു മലയോര മേഖലയിൽ മലയിടിച്ചിലും ഉരുൾപൊട്ടലും മൂലം വൻ കൃഷിനാൾം ഉണ്ടായതായി അദ്ദേഹം പറഞ്ഞു കടൽക്ഷോഭംമൂലം തീരമേഖല പട്ടിണിയിലാണ് ഈ സാഹ ചരൃത്തിൽ അടിയന്തിര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആവ ശ്യമാണെന്ന് ചെന്നിത്തല നിർദ്ദേശിച്ചു ഇടുക്കിയിൽ ശക്തമായ മഴയും കാറ്റും വ്യാപക നാശ മുണ്ടാക്കി

പലയിടങ്ങളിലും മൂന്നുദിവസമായി വൈദ്യുതി മുടങ്ങിയിരിക്കുകയാണ് ഇടമലക്കുടി ഉൾപ്പെടെ ആദിവാസി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ് മൂന്നാർ കണ്ണൻ ദേവൻ കമ്പനിയുടെ പള്ളിവാസൽ എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി

രാജമല ദേശീയോദ്യാനം താൽക്കാലികമായി അട ച്ചു കനത്ത മഴയെത്തുടർന്ന് ഇടുക്കി ജില്ലയിലെ പ്രൊഫ ഷണൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപ നങ്ങൾക്കും ഇന്ന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു എറണാകുളം ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും തുട രുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി പലയിട ങ്ങളിലും വൈദ്യുതി തടസ്സപ്പെട്ടു തീരപ്രദേശങ്ങളിൽ കട ലാക്രമണം രൂക്ഷമാണ് കാലവർഷം ശക്തി പ്രാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തിര നടപടികൾക്ക് എറണാകുളം ജില്ലാ കലക്ടർ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി കടലാക്രമണം രൂക്ഷമായ് ചെല്ലാനം വൈപ്പിൻ മേഖലകളിൽ ജിയോബാഗ് സ്ഥാപിക്കലും കാന ശുചീകരണവും അടിയന്തിരമായി പൂർത്തിയാക്കാൻ കലക്ടർ നിർദ്ദേശിച്ചു കനത്ത മഴയിൽ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതി നെത്തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ പടിഞ്ഞാറൻ പ്രദേ ശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലായി കുരമ്പൻമൂഴി

പെരുന്തേനരുവി ജലവൈദ്യുത പദ്ധതിയുടെ സംഭരണി നിറഞ്ഞ് വെള്ളം കവിഞ്ഞൊഴുകുകകയാണ്

വൈദ്യുതിത്തൂണുകളും മരങ്ങളും പൊട്ടിവീണ് ജില്ലയിൽ പലയിടത്തും വൈദ്യുതി മുടങ്ങി

എന്നാൽ ശക്തമായ കാറ്റ് ്തുടരുകയാണ്

ഇ ബി നോർത്ത് മലബാർ ഡിസ്ട്രിബ്യൂഷൻ ചീഫ് എഞ്ചി നീയർ കണ്ണൂരിൽ അറിയിച്ചു

കടൽ പ്രക്ഷുബ്ധമായിരിക്കും ചിലയിടങ്ങളിൽ ശക്ത മായ മഴയ്ക്കും സാധ്യതയുണ്ട്

ഐ ടി ജെ ഇ

ഐ ടികളിലും മറ്റ് ഉന്നത എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിലേക്കും പ്രവേശനം ലഭിക്കു ന്നത് ഈ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഹരിയാന യിലെ പഞ്ച്കുള സ്വദേശി പ്രണവ് ഗോയലിനാണ് ഒന്നാം റാങ്ക്

മുംബൈയിൽ കെനിയയെ മറുപടിയില്ലാത്ത രണ്ട് ഗോളിന് ഇന്ത്യ തോൽപ്പിച്ചു ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി യാണ് ടീമിനെ കിരീട നേട്ടത്തിലേക്ക് നയിച്ച രണ്ട് ഗോളു നേടിയത്

കൊല്ലം കുളത്തൂപ്പുഴയിൽ കണ്ടെത്തിയ കരിമ്പനി നിയ ന്ത്രണവിധേയമാക്കിയതായി മന്ത്രി കെ

വില്ലു മല കോളനിയിൽ പകർച്ചരോഗ പ്രതിരോധ്യ പ്രിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിൽ വൻ ഭക്തജനത്തിരക്ക് അവധി ദിനമായ ഇന്നലെ നിരവധി പേർ ദർശനത്തിനെത്തി നാലാമത്തെ ആരാധനയായ രോഹിണി ആരാധന മറ്റന്നാൾ നടക്കും ആലുവയിൽ പൊലീസ് മർദ്ദനത്തിരയായ ഉസ്മാന്റെ വീട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു പൊലീ സ് നടപടിയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ മുഖ്യമന്ത്രി നട ത്തിയ തീവ്രവാദ പരാമർശം പിൻവലിക്കണമെന്നും ഉസ്മാന്റെ ചികിത്സാ ചെലവ് ഗവൺമെന്റ് വഹിക്കണ മെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു

പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഏർപ്പെ ടുത്തണമെന്നതുമടക്കം പത്തിന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് കേരള സഹൃദയവേദിയുടെ അവുക്കാദർകുട്ടി നഹ അവാർഡ് ശാന്തിഗിരി ആശ്രമം ഓർഗനൈസിംഗ് സെക്ര ട്ടറി ഗുരുരത്നം ജ്ഞാനതപസ്വിക്ക് നൽകുമെന്ന് അവാർഡ് കമ്മിറ്റി ചെയർമാൻ മുൻമന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി അറി യിച്ചു

ശ്രീരാമകൃഷ്ണൻ സമ്മാനിക്കും പത്തനംതിട്ട ജില്ലയിൽ ഡെങ്കിപ്പനിക്കൊപ്പം എലിപ്പനി ബാധിതരുടെ എണ്ണവും വർദ്ധിച്ച സാഹചര്യത്തിൽ ജന ങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്പ് മുന്നറി യിപ്പ് നൽകി ആറന്മുള ഇലന്തൂർ ചിറ്റാർ പ്രമാടം കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്തത്

എസ് എം മണ്ണാർക്കാട് ടൌൺ യൂണിറ്റും സംയു ക്തമായി ജില്ലയിലെ കാഴ്ചയില്ലാത്തവർക്ക് റംസാൻ കിറ്റു കൾ വിതരണം ചെയ്തു